വാരാണസിയും ഖാസിപൂരും സന്ദർശിക്കും അന്താരാഷ്ട്ര നെല്ലുഗവേഷണ കേന്ദ്രത്തിന്റെ ക്യാമ്പസ് വാരാണസിയിൽ ഉദ്ഘാടനം ചെയ്യും

ഓസ്ട്രേലിയയ്ക്കെതിരെ ഇന്ത്യ ജയത്തിനരികെ

ദക്ഷിണേഷ്യയിലെയും സാർക്ക് മേഖലയിലെയും നെല്ല് ഗവേഷണത്തിനും പരിശീലനത്തിനുമുള്ള കേന്ദ്രമായി ഇത് പ്രവർത്തിക്കും

ആഭ്യന്തരവിപണിയിൽ ഉള്ളിക്ക് മികച്ചു വില ലഭിക്കാൻ ഇത് സഹായിക്കുമെന്ന് കാർഷികമന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഉള്ളിയുടെ വിപണി വില നിയന്ത്രണ വിധേയമായതിനാൽ ലഭ്യത വർദ്ധിച്ചിട്ടുണ്ട് ഉള്ളിയുടെ ആഭ്യന്തര വിലയിൽ സ്ഥിരത കൊണ്ടുവരുന്നതിനായി ഉള്ളി കയറ്റുമതി പ്രോത്സാഹിപ്പിക്കാനും കാർഷിക മന്ത്രാലയം തീരുമാനിച്ചിട്ടുണ്ട്

കാർഷിക കയറ്റുമതിയിൽ ഏറ്റവും ഉയർന്ന ധനസഹായം ഉള്ളിയ്ക്കാണ് ലഭിക്കുന്നതെന്നും കാർഷിക മന്ത്രാലയം വ്യക്തമാക്കി

രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായാണ് അദ്ദേഹം ദ്വീപിലെത്തുന്നത് കൂടുതൽ വിവരങ്ങളുമായി സുവർണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ നാളെ എത്തും

വാൾ ഓഫ് ലോസ്റ്റ് സ്പോൾസിൽ അദ്ദേഹം മെഴുകുതിരി കത്തിക്കുകയും സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിക്കുകയും ചെയ്യും ദ്വീപിലെ പ്രധാന ശ്രദ്ധാകേന്ദ്രമായ സെല്ലുലാർ ജയിൽ പ്രധാനമന്ത്രി സന്ദർശിക്കും പോർട്ട്ബ്ലെയറിലെ തെക്കൻ മുനമ്പിൽ സ്ഥാപിക്കുന്ന ഉയരംകൂടിയ കൊടിമരത്തിൽ ദേശീയപതാക ഉയർത്തും

ആൻഡമാൻ ദ്വീപ് സമൂഹങ്ങൾക്കായുള്ള സ്റ്റാർട്ട് അപ് സംരംഭത്തിനും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും ഇതുകൂടാതെ ഏഴ് മെഗാവാട്ട് ശേഷിയുള്ള സൌരോർജ്ജ പ്ലാന്റിന്റെയും സോളാർ ഗ്രാമത്തിന്റെയും ഉദ്ഘാടനവും അദ്ദേഹം നിർവ്വഹിക്കും

സൈബർ രംഗത്ത് ദൃശ്യമാകുന്ന പല തരത്തിലുള്ള ക്രമക്കേടുകൾ സംബന്ധിച്ച് കൌമാര വിദ്യാർത്ഥികൾക്ക് അറിവ് പകരാൻ ഉതകുന്നതാണ് കൈപ്പുസ്തകം

ചെറുകിട മധ്യവർഗ്ഗ സംരംഭകരെ സഹായിക്കാൻ കേന്ദ്രഗവൺമെന്റും റിസർവ്വ് ബാങ്കും വിവിധ നടപടികൾ സ്വീകരിച്ചുവരുന്നതായും മന്ത്രി പറഞ്ഞു

ഇതുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ന്യൂഡൽഹിയോട് സഹായം അഭ്യർത്ഥിച്ചിരുന്നു നാളെയാണ് ബംഗ്ലാദേശിൽ വോട്ടെടുപ്പ് നിലവിലെ പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീന നാലാം തവണയും അധികാരത്തിലെത്തുമെന്ന പ്രതീക്ഷയിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അവരുടെ അവാമീ ലീഗ് പാർട്ടിയുടെ പ്രതിയോഗിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ ബീഗം ഖാലിദാ സിയാ അഴിമതിക്കേസുകളിൽ കുടുങ്ങി ജയിലിലാണ്

മേഖലയുടെ പല ഭാഗങ്ങളിലും ഊഷ്മാവ് സാധാരണ നിലയിൽ നിന്നും വളരെ താഴെയാണ് അടുത്ത രണ്ടോ മൂന്നോ ദിവസങ്ങളിൽ ഇതേ നില തുടരാനാണ് സാധ്യത അതീവ ശൈത്യ നിലയിൽ ചെറിയ മാറ്റം വരുത്തിക്കൊണ്ട് വരും ദിവസങ്ങളിൽ പടിഞ്ഞാറ് നിന്നുള്ള കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിലയ ഉദ്യോഗസ്ഥൻ മൃത്യഞ്ജയ് മൊഹപത്ര ആകാശവാണിയോട് പറഞ്ഞു ഇന്ന് ഡൽഹിയിൽ രാവിലെ അതി ശൈത്യവും കനത്ത മൂടൽ മഞ്ഞും അനുഭവപ്പെട്ടു

തുടർന്ന് ആവശ്യമായ ചാനൽ തിരഞ്ഞെടുത്ത് അതിന് നിശ്ചയിച്ച തുക മാത്രം നൽകിയാൽ മതിയാകും പദ്ധതി പൂർണ്ണമായി നടപ്പാക്കാൻ ഫെബ്രുവരി ഒന്ന് വരെ സമയം അനുവദിച്ചിട്ടുണ്ട്

ദൂരദർശന്റെയും എല്ലൂ ചാനലുകളും പരിപാടി പ്രക്ഷേപണം ചെയ്യുന്നതാണ്

തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പ്രക്ഷേപണവും നടക്കും

ഓസ്ട്രേലിയയ്ക്ക് വിക്കറ്റുകൾ വീഴുന്നത് തടയാനായില്ല

ഇന്ത്യയ്ക്കുവേണ്ടി രവീന്ദ്ര ജെഡേജ മൂന്ന് വിക്കറ്റുകൾ നേടി ബുംറ മുഹമ്മദ് ഷെമി എന്നിവർ രണ്ട് വിക്കറ്റുകൾ വീതവും നേടി കളി ഒരു ദിവസം കൂടി ശേഷിക്കെ രണ്ട് വിക്കറ്റുകൾ വീഴ്ത്താനായാൽ ഇന്ത്യയ്ക്ക് ഓസ്ട്രേലിയയ്ക്കെതിരെ ചരിത്രജയം നേടാനാകും